എസ്

ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിയോടെ പ്രഖ്യാപിക്കും

വാഹനങ്ങളിൽ ജിപിഎസ് ഘടിപ്പിക്കാനുള്ള കാലാവധി നീട്ടി നൽകണമെന്ന് ് ആവശ്യത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് മന്ത്രി എ

ശശീന്ദ്രൻ എറണാകുളത്ത് നിൽം നികത്താൻ വ്യാജരേഖ ചമച്ച ന് സംഭവത്തിൽ വ്കുപ്പുതല അന്വേഷണം നടത്തുമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ

കൊടിയേറും കനത്ത സുരക്ഷയൊരുക്കി പോലീസ്

തുടക്കമായി പ്രാർത്ഥനയിൽ മുഴുകി വിശ്വാസികൾ

സി ഈ വർഷത്തെ എസ് എസ് എൽ

എച്ച്

സി എന്നീ പരീക്ഷകളുടെ ഫലപ്രഖ്യാപനവും ഉണ്ടായിരിക്കുന്നതാണ് ഔദ്യോഗിക ഫലപ്രഖ്യാപനത്തിന് ശേഷം ഗവൺമെന്റിന്റെ അഞ്ച് വെബ് സൈറ്റുകളിലൂടെ ഫലം അറിയാം

ഫലം പി ആർഡി ലൈവ് മൊബൈൽ ആപ്പിലൂടെയും അറിയാനാകും ഈ വർഷത്തെ ഹയർസെക്കണ്ടറി പരീക്ഷാഫലം മറ്റന്നാൾ പ്രഖ്യാപിക്കും

വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കൂ

ടി

പൊതുഗതാഗത സംവിധാനത്തിൽ ആദ്യമായി ഒരുക്കുന്ന ദീർഘദൂര ചെയിൻ സർവ്വീസ് യാത്രക്കാർക്ക് ഏറെ ഗുണകരമാകുമെന്ന് മന്ത്രി എ

ശശീന്ദ്രൻ

വിജിലൻസ് അന്വേഷണം നടത്ത്ണമെന്ന ആവശ്യം മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ്ണെന്നും ഇക്കാര്യത്തിൽ അദ്ദേഹം തീരുമാനമെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു

ഇത്തരം സംഭവങ്ങൾ മറ്റിടങ്ങളിലും നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു

പൂരത്തിന്റെ മുഖ്യ ആകർഷണങ്ങളായ കുടമാറ്റത്തിനുള്ള കുടകളും ആലവട്ടവും വെഞ്ചാമരവും എല്ലാം അവസാനഘട്ട മിനുക്ക് പണിയിലാണ് കനത്ത സുരക്ഷാക്രമീകരണങ്ങളാണ് തൃശൂർ നഗരത്തിൽ ഒരുക്കിയിരിക്കുന്നത്

പൂരം വെടിക്കെട്ടിന് മാലപ്പടക്കം അനുവദിക്കാനാകില്ലെന്ന എക്സ്പ്ലോസീവ് ഡെപ്യൂട്ടി കൺട്രോളറുടെ നിലപാടിന് എതിരെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്

പ്രഭാതം മുതൽ പ്രദോഷ്ട്ര പ്രെ അന്നപാനീയങ്ങൾ വെടിഞ്ഞ് പ്രാർഥനയിൽ മുഴുകി അവ്ർ പാപപ്രായച്ചിത്തം തേടും

പന്മന ആശ്രമത്തിൽ വിപുലമായ അനുസ്മരണ പരിപാടികളാണ് ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം പ്രതിനിധി നീരജ് ലാൽ

മിതമായ വിലയിൽ ഗുണനിലവാരമുള്ള പഠനോപകരണങ്ങൾ വിദ്യാർത്ഥികൾക്ക് മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങാവുന്നതാണ്

വിക്ടോറിയ കോളേജിലെ ഗോപിക എം

പാലക്കാട് മണ്ണാർക്കാട് കല്പടി എം

എസിലെ പ്രണവ് പി വി യാണ് കലാപ്രതിഭ

ഇന്നലെ രാത്രി കോൺഗ്രസ് പ്രവർത്തകനായ ദീപു കൃഷ്ണന്റെ വീടിനു നേരെ ബോംബേറുണ്ടായതിനെ തുടർന്നാണ് ഹർത്താലിന് ആഹാനം ചെയ്തത്

തിരുവനന്തപുരം കെ

സി സി ആസ്ഥാനത്താണ് യോഗം ചേരുന്നത്

ആഗോളവിപണിയിലെ നഷ്ടമാണ് ഇന്ത്യൻ ഓഹരിവിപണികളിൽ പ്രതിഫലിക്കുന്നത്

വാകേരി ചെറുകണ്ടത്തിൽ പി

കോഴിക്കോട് രോഗിയെ എത്തിച്ചതിന് ശേഷം തിരിച്ച് വരുമ്പോഴാണ് അപകടം

ഈ നേട്ടം കൈവരിക്കുന്ന ലോകത്തെ പ്രായം കുറഞ്ഞ രണ്ടാമത്തെ താരമെന്ന ബഹുമതിയ്ക്കും നിഹാൽ അർഹനായി

മൂന്ന് ടീമുകളാണ് മൽസരത്തിനുള്ളത്